പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് ഒരു രാജ്യം ഒരു പാചകവാതക ശൃംഖല എന്ന നില കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യ അമേരിക്ക മന്ത്രിതലചർച്ച നാളെ അമേരിക്കൻ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഇന്ത്യയിലെത്തി

ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബോളിംഗ് തെരഞ്ഞെടുത്തു

നാലാമത് ഇന്ത്യ എനർജി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദഹം

വ്യാവസായിക ലോകത്ത് ഏറ്റവും കുറവ് കാർബൺ പുറന്തള്ളൽ നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

അന്താരാഷ്ട്രതലത്തിലെ പ്രഗത്ഭരായ ഊർജ്ജ ഉല്പാദക വിതരണ കമ്പനികളും മികച്ച പെട്രോളിയം കമ്പനികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഉദ്യർജ്ജ മേഖലയിലെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന്തിനായി അന്താരാഷ്ട എണ്ണക്കമ്പനികളുടെ മേധ്ാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി

നിതി ആയോഗും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്

ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആശങ്കകളും വെല്ലുവിളികളും പെട്രോളിയം കമ്പനികളുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ചയുടെ വിഷയമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജാഗരൂകമായ ഇന്ത്യ സമൃദ്ധമായ ഇന്ത്യ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം

വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറ്റി ഒമ്മെക് പോംപിയോയും നാളത്തെ മന്ത്രിതല ചർച്ചയിൽ പ്രക്കെടുക്കും

ഇരുട്രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൊണ്ടുപോകുന്നതിനും ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്

ത്രിവർണ്ണ പതാക നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവും സ്വത്വുമാണെന്നും അതിനെ അപമാനിക്കുവാൻ പാടില്ലായിരുന്നുവെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

ത്രിപുരയിലെ വിനേങ്ങ സഞ്ചാരമേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ ദേശീയ പാതകൾ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ

ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ബന്ധം മൂല്യങ്ങളിൽ ഉറച്ചു മുന്നോട്ടു പോകുമെന്നും എസ് ജയ്ശങ്കർ വൃക്തമാക്കി

അദ്ദേഹം തന്നെയാണ് ഇക്കാരൃം ടിറ്ററിലൂടെ അറിയിച്ചത് ഡോക്ടർമാരുടെ നിർദേശപ്രകാരം ദക്ഷിണ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ശ്രീ അജിത് പവാർ അറിയിച്ചു

കഴിഞ്ഞ തവണത്തെ പാക്കേജ് നടപ്പായില്ല

യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗം രണ്ടാം വരവിലാണ്

സ്പെയിനിൽ അടിയന്തരാവസ്ഥയാണ് ഇറ്റലിയിലും കോവിഡിന്റെ രണ്ടാംവരവ് ഭയം സൃഷ്ടിക്കുകയാണ്

രാഷ്ട്രീയ ഏകതാ ദിവസ് ആയും ഈ ദിനം ആചരിക്കും

കൽക്കരി മന്ത്രാലയത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരായ പ്രദീപ് കുമാർ ബാനർജി നിത്യാനന്ദഗൌതം കാസ്ട്രോൺ ലിമിറ്റഡ് ഡയറക്ടർ മഹേന്ദ്ര കുമാർ അഗ്ർവാൾ എന്നിവർക്കും പ്രത്യേക ജഡ്ജി ഭരത് പരാശ്ശർ മൂന്ന് വർഷം തടവുശിക്ഷ വിധിച്ചു

ലേലം പെട്ടെന്ന് നിർത്തിവച്ചതിനെക്കുറിച്ച് വ്യാപാരികളോ ഉള്ളി കർഷക അസോസിയേഷനുകളോ ഔദ്യോഗിക അറിയിപ്പുകളോ കത്തുകളോ നൽകിയിട്ടില്ല